നടക്കുന്ന ഹോൺബിൽ മഹോൽസവം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ഇവർക്കെതിരെ ശക്തവും ഫലപ്രദവുമായ നടപടി സ്വീകരിക്കുന്നതിന്ഒമ്പതിന അജണ്ട പ്രധാനമന്ത്രി അവതരിപ്പിച്ചു സാമ്പത്തിക ക്രമക്കേടു നടത്തുന്നവരുടെ കൈവശമുളള അനധ്ധികൃത പണം കണ്ടെത്താൻ സമഗ്രവും കാര്യക്ഷമവുമായ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് അംഗരാജ്യങ്ങളുടെ സഹകരണവും ഇടപെടലും പ്രധാനമന്ത്രി അഭൃർത്ഥിച്ചു അതിർത്തികടന്നുളള സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാൻ ഐക്യരാഷ്ട്ര സംഘടന അനുശാസിക്കുന്ന നിയ്മങ്ങൾ ഉടൻ നടപ്പാക്കാൻ അംഗരാജ്യങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് ശ്രീ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു

യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തു

അമേരിക്കയും ജപ്പാനും എന്നും ഇന്ത്യയുമായി നല്ല സൌഹൃദം പങ്കുവെച്ചിട്ടുണ്ടെന്ന് ശ്രീ

ജനാധപത്യ മൂല്യങ്ങളിൽ ഊന്നിയുള്ളതാണ് ജയ് കൂടിക്കാഴ്ചയെന്നും ഇന്ത്യ അതിനായി തുടർന്നും പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വ്യാപാരം നിക്ഷേപം ആരോഗ്യം തുടങ്ങി രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ ഉൾപ്പെടെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനാണ് ചർച്ചയിൽ ഊന്നൽ നൽകിയത്

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

ഇതു വഴിയുള്ള രാത്രികാല യാത്രാനിരോധനത്തിന് പരിഹാരം കാണുന്നതിനായി സുപ്രീംകോടതി നിയമിച്ച കമ്മിറ്റിയുടെ ന്നീർദ്ദേശപ്രകാരം കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശിങ്ങൾ അംഗീകരിച്ചതായി സുപ്രീംകോടതിയിൽ അറിയിക്കൂം

മേൽപ്പാതകളുടെ അടിഭാഗത്ത് വരുന്ന നിലവിലുള്ള റോഡ് വന്യമൃഗങ്ങൾക്ക് സഞ്ചരിക്കാൻ തടസ്സമില്ലാത്ത രീതിയിൽ തയ്യാറാക്കും രാത്രികാല യാത്രാ നിരോധനം മൂലം വിവിധ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം കണക്കിലെടുത്താണ് നടപടിയെന്ന് ഗതാഗതമന്ത്രി എ

നടപ്പുസാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഇതിനാവശ്യമായ തുക വകയിരുത്തുന്നതിന് സംസ്ഥാന ആസൂത്രണ ബോർഡിനോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ് ന്യൂസ് ഡസ്ക് ആകാശവാണി

യുവാക്കളും കർഷകരും സ്ത്രീകളും ആത്മഹത്യ ചെയ്യുന്നതായുളള റിപ്പോർട്ടുകളിൽ താൻ അസ്വാസ്ഥനാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു വിവിധ തൽപരകക്ഷികളുടെ കൂട്ടായ ശ്രമങ്ങളിലൂടെ ആത്മഹത്യ തടയുന്നതിനുളള ദേശീയ പ്രചാരണ് പ്രവർത്തനങ്ങൾ ആവശ്യമാണ് മനസ്സ് തളരുന്ന സമയങ്ങളിൽ യോഗ ധ്യാനം ആത്മീയത എന്നിവ സമച്ചിത്ത്യും സാന്ത്വനവും പകർന്നു നൽകുമെന്നും ശ്രീ വെങ്ക്യ്യൻനായിഡു പറഞ്ഞു

ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മന്ത്രി കെ

ശൈലജ നിർവ്വഹിക്കും കൂടുതൽ വിവരങ്ങളുമായി കവിതസുനു

ഇന്ത്യയിൽ മാത്രം ഏഴ് ലക്ഷത്തോളം പേർക്ക് എച്ച് ഐ

ഐ വി ബാധിതരുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്

എച്ച് ഐ വി ലോകബാധിതരുടെ കണക്കെടുത്താൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ്

ഐ

അതേസമയം എച്ച് ഐ വി ഉയർത്തുന്ന വെല്ലുവിളികൾ തടയുന്നതിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ബഹുദൂരം മുന്നോട്ടുപോയെന്നും യൂണിസെഫ് സൂചിപ്പിക്കുന്നു ഫലപ്രദമായ മരുന്നുകളുടെ സ്ഥിരഉപയോഗംമൂലം ലോകത്ത് എച്ച് ഐ വി ബാധിതരാകുന്നവരുടെ എണ്ണത്തിലും എയ്ഡ്സ് മൂലം മരിക്കുന്നവരുടെ എണ്ണത്തിലും കുറവ് ഉണ്ടായിട്ടുണ്ട്

നാഗലാന്റ് ഗവർണ്ണർ പി

ഉൽസവത്തിനായി അഞ്ച് കോടി രൂപയാണ് നാഗലാന്റ് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്

മൂന്ന് പാദങ്ങളിലെ ഏറ്റവുംകുറഞ്ഞ ജി

പി നിരക്കാണിതെങ്കിലും ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം ഇന്ത്യ നിലനിർത്തി ഇക്കാര്യത്തിൽ ചൈനയ്ക്ക് മുമ്പിലാണ് ഇന്ത്യ

സമ്മതിദായകരുടെ പിൻതുണ ഉറപ്പാക്കുന്നതിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കൾ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നു രാജസ്ഥാനിൽ ബി ജെ

പ്രസിഡന്റ് അമിത് ഷാ മുഖ്യമന്ത്രി വസുന്ദരാ രാജെ കോൺഗ്രസ് നേതാക്കളായ അശോക് ഗെഹ്ലൊട്ട്സച്ചിൻ പൈലറ്റ്രാഷ്ട്രീയ ലോക്ദൾ പ്രസിഡന്റ് അജിത്ത് സിംഗ് എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു തെലങ്കാനയിൽ മുതിർന്ന ബി ജെ

ക്ഷേമ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ തടസങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ നിർദ്ദേശം ആധാർ ഉപയോഗവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണൽ പേമെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് അയച്ച കത്തിന്റെ പശ്ചാത്തലത്തിലാണ് യു